പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദ്യി ഇന്ന് റഷ്യയിലേക്ക്

കേരളത്തിൽ കൊച്ചി മെട്രോയുടെ മഹാരാജാസ് കോളേജ് തൈക്കുടം പാത മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

റഷ്യൻ നഗരമായ വ്ളാഡിവസ്റ്റോക്കിൽ നടക്കുന്ന കിഴക്കൻ സാമ്പത്തിക ഫോറം ഉച്ചകോടിയിൽ ശ്രീ

ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്താനുള്ളു നിരവധി വിഷയങ്ങൾ റഷ്യൻ നേതാക്കളുമായി പ്രധാനമത്ത്രിച്ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ന്യൂഡൽഹീയിൽ പറഞ്ഞു

പ്രതിരോധം ഊർജ്ജാവശൃത്തിനുള്ള ആണവ സഹകരണം എന്നിവയിൽ പരമ്പരാഗത രീതികൾക്കതീതമായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഖനനം നൈപുണ്യവികസനം ഉരുക്കുവ്യവസായം ഔഷധരംഗം വിദ്യാഭ്യാസം കൃഷി എന്നീ രംഗങ്ങളിൽ സഹകരണ സാധ്യതകൾ വിലയിരുത്തും പ്രധാനമന്ത്രിയുടെ ദ്വിദിന സന്ദർശനത്തിനിടെ നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കാനും സാധ്യതയുണ്ട്

ഇന്ത്യ റഷ്യ സഹകരണത്തിനുള്ള അടുത്ത അഞ്ച് വർഷത്തെ പ്രവർത്തന പരിപാടി ചർച്ചകളിൽ ആവിഷ്ക്കരിക്കും ഗൾഫ് ഡി

ആർ കൊറിയ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയും ചർച്ചു ചെയ്യും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിന്റെ കൂടുതൽ അടുത്ത് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നാളെ നടത്തും

സംസ്ഥാനത്ത് നേരൂത്ത്കൃപ്ര്യവർത്തിച്ചുവന്ന നൂറ് ട്രൈബ്യൂണലുകൾക്ക് പുറമെയാണിത്

ടോക്യോയിൽ കേന്ദ്ര പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും ജാപ്പനീസ് രാജ്യരക്ഷാമന്ത്രി തകേഷി ഇവായയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് വിഷയം ചർച്ചയായത് ഇന്ത്യയ്ക്കും ജപ്പാനുമിടയിലെ നയതന്ത്ര സഹകരണത്തിന്റെ പ്രധാന്യം മേഖലയിലെ സമാധാനം സുരക്ഷ സുസ്ഥിരത എന്നീ വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്തു

ശ്രീനഗറിൽ നിന്ന് താഴ്വരയിലെ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതവും സാധാരണ നിലയിലാണ്

ന്യൂഡൽഹിയിലെ ഗാർവി ഗുജറാത്ത് ഭവൻ ഉദ്ഘാട്ട്ഈ ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഇന്നലെ ഇസ്താമാബാദിലെ ഇന്ത്യൻ ഹൈകമ്മീഷൻ ഉദ്യോഗസ്ഥർ കുൽഭൂഷൺ ജാദവിനെ സന്ദർശിച്ചു

കടവന്ത്രയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഹർദ്ദീപ്സിങ് പുരി അദ്ധ്യക്ഷനാകും മെട്രോയുടെ പേട്ട മുതൽ എസ്

കേരളത്തില്ലെ എന്നത കലാലയങ്ങൾ മികവിന്റെ കാര്യത്തിൽ മുന്നിലായിരുന്നുഏവുക്കിലും ഇടക്കാലത്ത് ഒരു സ്തംഭനാവസ്ഥയുണ്ടായിട്ടുണ്ട്

ജിദ്ദയിൽനിന്ന് നേരിട്ട് സൌദി എയർലൈൻസ് വിമാനങ്ങളാണ് ഹാജിമാരുമായി മടങ്ങിയെത്തുന്നത്

പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി

രണ്ടാം ഇന്നിംഗ്സിൽ മൂന്നു വീതം പ്ലിക്കറ്റുകൾ നേടിയ മുഹമ്മദ് ഷമിയും രവീന്ദ്ര ജഡേജയുമാണ് ഇന്ത്യയ്ക്ക് ജയം സമ്മാനിച്ചത് ഹനുമ വിഹാരിയാണ് മാൻ ഓഫ് ദി മാച്ച്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് കൊല്ലം ആലപ്പുഴ എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഐസ് നിർമ്മിത അപ്പാച്ചെ എ

പത്താൻകോട്ട് വ്യോമതാവളത്തിൽ നടക്കുന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബി എസ് ധന്നോവ മുഖ്യാതിഥിയായിരിക്കും